ഉപഗ്രഹങ്ങളെ ആദ്യമായി ഒരേ സമയം മൂന്ന് വൃത്യസ്ത ഭ്രമണപഥത്തിലെത്തിച്ചെന്നതാണ് ദൌത്യത്തിന്റെ പ്രധാന പ്രത്യേകത

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ് എമിസാറ്റ് നിശ്ചിത ഭ്രമണപഥത്തിൽ കൃത്യമായി എത്തിച്ചതാ യിഐ എസ് ആർ

എസ് എൽ

ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഴുവൻ കാര്യക്ഷമമായ ഇലക്ട്രോണിക് നിരീക്ഷണത്തിന് എമിസാറ്റ് പ്രതിരോധ സേനകളെ സഹായിക്കും

വെടിവയ്പിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിപ്പരം സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഭൂീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘം പുൽവാമയിലെ ലാസ്റ്റിപുര മേഖലയിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു

ശ്രീനറിൽ നിന്നുമായിരുന്നു അറസ്റ്റ് ഉത്തര കശ്മീരിലെ കുപ്പാര ജില്ലകാരനായിരുന്ന ഫയാസീന്റെ തലയ്ക്ക് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നതായി ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഇയാൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരുന്നത്

ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു ആക്രമണത്തിൽ ഒരു പ്രദേശവാസിക്ക് പരിക്കേറ്റു

എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന നേതാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും വാർദ്ധയിലാണ് ആദ്യ പരിപാടി

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് തെലങ്കാനയിൽ വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുക്കും

ജെ

എഐസിസിയുടെ സംഘട്ടനി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ

അതിനിടെ വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ ആദ്യവരവ് ആഘോഷമാക്കാനുള്ള തയാറെടുപ്പിലാണു കോൺഗ്രസ് പ്രവർത്തകർ ഉത്തർപ്രദേശിലെ അമേഠിയിലും ശ്രീ രാഹുൽ മത്സരിക്കുന്നുണ്ട്

രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് റ്റി ഡി

എൽ

പൊറാങ്കിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു

ഒരാഴ്ചക്കകം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലാണ് വിവിപാറ്റ് സ്തിപ്പുകൾ കൂടി എണ്ണണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് അതേസമയം പോളിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടക്കുന്നെന്ന വാദം തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയെ അറിയിച്ചു

അക്രമംഭീകരതഅസഹിഷ്ണുത എന്നിവ ലോകമെമ്പാടും വ്യാപിക്കുകയാണെന്ന് രാഷ്ട്രപതി നന്ദിപ്രസംഗത്തിൽ പറഞ്ഞു സഹിഷ്ണുതസമാധാനം എന്നിവയാണ് നമ്മുടെ ലക്ഷ്യമെന്നും മഹാത്മാ ഗാന്ധിയുംനാനക് ദേയ്ജിയും ഇക്കാര്യങ്ങളിൽ മാതൃകയാണെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി ചിലിയിലെത്തിയത് മൂന്നു ദിവസത്തെ സന്ദർശനത്തിനാണ് രാഷ്ട്രപതി എത്തിയത്

കർഷകർക്കുള്ള ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് വർധന

പെരുമാറ്റ ചട്ടം നിലവിൽ വന്നതോടെയാണ് മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്

മാധ്യമവാർത്തകളെത്തുടർന്നാണ് സമയപരിധി നീട്ടുന്നതെന്ന് പ്രത്യക്ഷ നികുതി ബോർഡ് അറിയിച്ചു എന്നാൽ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ആധാർ നിർബന്ധമാക്കുന്ന ഉത്തരവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും

പരിക്ക്റ്റ്റ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുരക്ഷാ പ്രവർത്തനങ്ങൾ തുടരുകയാണ് പ്രധാനമന്ത്രി കെ പിശ്രർമ്മ ഒലി സംഭവത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി

ഇതോടെ ബാങ്ക് ഓഫ് ബറോഡ രാജ്യത്തെ മൂന്നാമത്തെ വലിയ വായ്പ ദാതാവായി മാറും രാജ്യത്തെ പ്രധാന പൊതുമേഖലാ ബാങ്കുകളുടെ സമീപകാലത്തെ രണ്ടാമത്തെ ലയനമാണ് ഇന്ന് നടക്കുന്നത്

ലയനത്തോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും എച്ച് ഡി എഫ് സി ബാങ്കിനും പിന്നാലെ രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ബാങ്ക് ആയി ബാങ്ക് ഓഫ് ബറോഡ മാറും

ശ്രേഷ്ഠ്യും സമ്പുഷ്ടവുമായ ഒരു ചരിത്രം ഒഡീഷയ്ക്കുണ്ടെന്നും സ്ഥാർസ്കാരിക വൈവിധ്യത്തിലും പ്രകൃതി ഭംഗിയിലും ഒഡീഷ് പ്രപ്സിദ്ധമാണെന്ന് ഉപരാഷ്ട്രപതി എം

കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുള്ളതാണ് പദ്ധതി

വിദഗ്ദ്ധ ഡോക്ടർമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടിവെന്റിലേറ്ററിൽ തുടരുകയാണ് വിദഗ്ദ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വെന്റിലേറ്റർ തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു